പ്രയത്നിങ്ങൾക്ക് ഫലം ജാഗ്രത തുടരണമെന്നും ് മന്ത്രി കോവിഡ് റാപ്പിഡ്ട് ഏട്സ്റ്റിനുള്ള മാനദണ്ഡം തയ്യാറായി

നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി

പതിനെട്ടര ലക്ഷത്തിലധികം പേർ രോഗബാധിതർ

തമിഴ്നാട്ടിലും കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ആയിരം കവിഞ്ഞു ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദുരിതാശ്വാസകേന്ദ്രങ്ങളിലടക്കമുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ ക്ഷേമം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പാല്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ക്യൂന്ദു ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണപ്രിദ്ദേശങ്ങൾക്കും കത്തയച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിലും ക്യൂന്ദങ്ങളിലും കഴിയുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് ഭക്ഷണം കുടിപ്പെള്ളം ശുചിത്വം എന്നിവയ്ക്കു പുറമേ മെഡിക്കൽ സൌകര്യ്ങ്ങളും ഉറപ്പുവരുത്തണമെന്ന് കോടതി നിർദേശിച്ചിരുന്നു

ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളയാൾ ദുബായിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നുള്ളയാൾ ഷാർജയിൽ നിന്നും വന്നതാണ്

ശൈലജ അറിയിച്ചു

സമൂഹ വ്യാപനമുണ്ടായോ എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമായാണ് സംസ്ഥാനം റാപ്പിഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്

കോവിഡ് സ്ഥിരീകരിച്ച സ്ഥിരീകരിക്കാൻ സാധ്യതയുള്ളവരെ പരിചരിക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി പ്രാഥമിക കൂടുംബാരോഗൃ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആരോഗൃ പ്രവർത്തകർ എന്നിവരാണ് ആദ്യ ഗ്രൂപ്പിൽ പൊലീസ് അങ്കണവാടി പ്രവർത്തകർ ആശാ വർക്കർമാർ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ രോഗബാധിതരുമായി ഇടപഴകാൻ സാധ്യതയുള്ള പൊതുജനങ്ങൾ ഓൺലൈൻ ഡെലിവറി സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്നവർ റേഷൻകട പലചരക്ക് കടകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ എന്നിവരാണ് രണ്ടാം ഗ്രൂപ്പ്

ജില്ലകളിൽ കളക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും പരിശോധന

ഏപ്രിൽ രണ്ടിന് കോയമ്പത്തൂരിൽ എത്തുന്നതിനു മുൻപ് പാലക്കാട് നഗരത്തിലെ രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ഇയാൾ ചികിത്സ തേടിയിട്ടുണ്ട്

വിവരങ്ങൾ നൽകുന്നത് ഇടുക്കിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

പിഴ ഈടാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ട്

ഐ ഐ

ഇതല്ലാതെ പ്രചരിക്കുന്ന മറ്റ് ഐഡികൾ വ്യാജമാണെന്നും സംഭാവന നൽകുന്നതിന്റ് മുൻപ് വാസ്തവം മനസ്സിലാക്കണമെന്നും പി

വാഹനങ്ങളിൽ ഡ്രൈവർക്കും ഒരു സഹായിക്കും മാത്രമായിരിക്കും യാത്ര ചെയ്യാൻ അനുമതി നൽകുക